കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തെ സിബിഐ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു

മത്സരത്തിന് ഇന്ന് തുടക്കം

ചിദംബരത്തെ സിബിഐ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു

ഇപ്പോൾ സിബിഐ ആസ്ഥാനത്തുള്ള ചിദംബരത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

എന്നാൽ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ലിസ്റ്റ് ചെയ്യാത്ത ഹർജികൾ പരിഗണിക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ എൻ വി രമണ എം ശാന്ദനാ ഗൌഡർ അജയ് റെസ്തോവി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു

ഒളിവിൽ പോയതല്ലെന്നും ജാമ്യഹർജി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നുവെന്നും ചിദംബരം പറഞ്ഞു തുടർന്ന് അഭിഭാഷകർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി പിന്നാലെ സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്റേറ്റ് ഉദ്യോഗസ്ഥർ ചിദംബരത്തിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി സിബിഐ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എക്സ് മീഡിയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ കേന്ദ്ര ധനകാര്യ മന്ത്രി പി ചിദംബരത്തിന് പിന്തുണ നൽകിയ മുതിർന്ന കോൺഗ്രസ്സ് നേതാക്കളെ ശക്തമായി വിമർശിച്ച് ബിജെപി രംഗത്തെത്തി കോൺഗ്രസ്സ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ സംരക്ഷണയിലാണ് ചിദംബരം അഴിമതി നടത്തിയതെന്ന് ബിജെപി വക്താവ് ജി

ഫ്രാൻസ് യു എ ഇ ബഹ്റിൻ എന്നീ രാഷ്ട്രങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്

വ്യാപാരം സുരക്ഷ ഊർജ്ജസുരക്ഷ ഭീകരവാദം ഇന്തോ പസഫിക് സമുദ്രമേഖലയിലെ സഹകരണം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടത്തും ഫ്രഞ്ച് പ്രധാനമന്ത്രി എഡാർഡ് ചാൾസ് ഫിലിപ്പെയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

നിർണ്ണായക വേളയിലാണ് പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കുന്നതെന്നും ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്നും ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡർ വിനെയ് മോഹൻ കവത്ര ആകാശവാണിയോട് പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ യു

ഇ സന്ദർശനവേളയിൽ അദ്ദേഹത്തിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്ക്കാരമായ ഓർഡർ ഓഫ് സയ്യിദ് സമ്മാനിക്കും മനാമയിൽ നവീകരിച്ച കൃഷ്ണക്ഷേത്രം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ബഹ്റിൻ രാജകുമാരനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ എസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ രാജീവ് ഗൌബ

സിൻഹ സ്ഥാനമൊഴിയുന്ന ഒഴിവിലായിരിക്കും നിയമനം

മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും ഫ്രാൻസ് വിദേശകാരൃമന്ത്രി പ്രസ്താവനയിൽ ആവശൃപ്പെട്ടു

നടപടി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും വസ്തുത ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്

കമ്പനികളെക്കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഓഹരിവിപണികളിൽ നേട്ടമുണ്ടാക്കുന്ന തട്ടിപ്പ് നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ നീക്കം

ഇന്നലെ കശ്മീർ താഴ്വരയിൽ കാര്യമായ അനിഷ്ടസംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മു ഡിവിഷനിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മധ്യമേഖലാ ഡി ഐ ജി വി കെ ബേർഡിയും പബ്ലിക് റിലേഷൻ ഡയറക്ടർ ഡോ സയിദ് സെഹറിഷ് അസ്ഗറും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒറ്റപ്പെട്ട ചില അനിഷ്ടസംഭവങ്ങൾ തദ്ദേശീയമായി തന്നെ പരിഹരിച്ചിട്ടുണ്ടെന്നും അവർ അറിയിച്ചു

കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോ

ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് കുമാർ ഗ്യാവലിയും സംയുക്തമായാണ് യോഗത്തിന്റെ അദ്ധ്യക്ഷത വഹിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സംയുക്ത കമ്മീഷൻ അവലോകനം ചെയ്തു

കേസ് ദുരഭിമാനക്കൊലയായി പരിഗണിച്ചാൽ പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം

നിലമ്പൂർ താലൂക്കിലാണ് അഞ്ച് ദുരിതാശ്ചാസ ക്യാമ്പുകളുള്ളത്

പത്ത് സംഘങ്ങളാണ് ജില്ലയിൽ പരിശോധന നടത്തുന്നത്

അനധികൃതമായി കാറികൾ പ്രവർത്തിച്ചാൽ ദൂരന്തനിവാരണ നിയമപ്രകാരം കേസെടുക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട്

ഇടുക്കി ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലും രണ്ടുപേർ അടങ്ങുന്ന അഞ്ച് സംഘം ഇന്ന് മുതൽ ഏഴ് ദിവസം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും

സമാധിസ്ഥലമായ പന്മന ആശ്രമത്തിൽ ജയന്തി സമ്മേളനം നടക്കും വിവിധ എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ജയന്തി സമ്മേളനവും ഘോഷയാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്

വെസ്റ്റ് ഇൻഡീസാണ് എതിരാളികൾ ആന്റിഗ്വയിലെ നോർത്ത് സൌണ്ട് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് മൽസരം

അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ആദ്യമായാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്

വി സിന്ധു കെ ശ്രീകാന്ത് സൈന നെഹ്വാൾ എന്നിവർ പ്രീ കാർട്ടറിൽ കടന്നു

അനീഷിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണ്ണായകമായത്

പാലക്കാട് കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടുമുണ്ട്